ത വിദേശത്ത് നിന്ന് നാട്ടിലെത്താൻ നോർക്ക വഴി രജിസ്റ്റർ ചെയ്ത പ്രവാസികളുടെ എണ്ണം നാല് ലക്ഷത്തോളമായി

കാർഷിക മേഖല ചെറുകിട ഇടത്തര വ്യവസായ മേഖല എന്നിവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാനാവശ്യമായ നടപടികൾ എന്നിവയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു സാധാരണക്കാരുടേയും തൊഴിലാളികളുടേയും ക്ഷേമം ഉറപ്പുവരുത്താൻ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും വ്യാപാര മേഖലയെ ഇപ്പോഴത്തെ വിഷമ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാനാവശ്യമായ നടപടികൾ ആവിഷ്ക്കരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മുൻപ് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്ക്കരണങ്ങളും ഘടനാപരമായി വരുത്തേണ്ട പുതിയ മാറ്റങ്ങളും ചർച്ചയായി അടിസ്ഥാന മേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യവും കോവിഡ് സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാനാവശ്യമായ നടപടികളും ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി നിർദേശിച്ചു രമേ രാജ്യത്ത് ലോക്ഡൌൺ മൂന്നാംഘട്ടം നാളെ ആരംഭിക്കും

ജനജീവിതം സാധാരണ നിലയിലേയ്ക്ക് കൊണ്ടുവരുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് മാർഗ്ഗ നിർദ്ദേശം അനുസരിച്ച് നിയന്ത്രണത്തിൽ സംസ്ഥാനങ്ങൾ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കർശന ഉപാധികളോടെയായിരിക്കും ഇളവുകൾ

വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കാണ് രോഗം ബാധിച്ചത്

ഇന്നലെ പുതിയ ഹോട്സ്പോട്ടുകൾ കണ്ടെത്തിയില്ല

എറണാകുളം ആലപ്പുഴ തൃശൂർ ജില്ലകൾ പുതിയ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് ഗ്രീൻ സോണായി ശേഷിക്കുന്ന ഒൻപത് ജില്ലകൾ ഓറഞ്ച് സോണിലാണ്

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

ഇയാളെ മാനന്തവാടി കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റി

തൃശൂർ ജില്ലയെ ഗ്രീൻ സോണിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരെ മടക്കി അയക്കാനും പ്രവാസികളെയും മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരേയും മടക്കി എത്തിക്കാനും ക്രമീകരണങ്ങൾ തുടരുകയാണ്

രദേ ഇടുക്കി ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന നാലുപേർക്ക് രണ്ട് ദിവസത്തിനിടെ രോഗം മാറി നെടുങ്കണ്ടം ചെറുതോണി ഏലപ്പാറ സ്വദേശികളായ നാലുപേരും ആശുപത്രി വിട്ടു നിലവിൽ പത്തുപേരാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്

ഇന്നലെ പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രുമ കോഴിക്കോട് നിലവിൽ ഒരു തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ നാലുപേരാണ് മെഡിക്കൽ കോളജിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്

അതിനിടെ കോവിഡ് ബാധിച്ച് കുവൈറ്റിൽ ചികിത്സയിലായിരുന്ന കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി മെഹറൂഫ് മരിച്ചു

ഡോക്ടർമാർ ഉൾപ്പെടെ നൂറോളം ആരോഗ്യ വിദഗ്ധരാണ് കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാന ജില്ലാ കൺട്രോൾ റൂമുകളിൽ ജോലി ചെയ്യുന്നവരെ മന്ത്രി കെ

ശൈലജ അഭിനന്ദിച്ചു ദർദ സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് തൊഴിലാളികളേയും തീർത്ഥാടകരേയും കുടിയേറ്റ വിദ്യാർത്ഥികളേയും മറ്റിടങ്ങളിൽ കുടുങ്ങിയ ആളുകളെയും സ്വദേശങ്ങളിൽ എത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സർവ്വീസുകൾ തുടങ്ങിയതെന്ന് റെയിൽവെ വ്യക്തമാക്കി സംസ്ഥാന ഗവൺമെന്റ് മുൻകയ്യെടുത്ത് എത്തിക്കുന്ന യാത്രക്കാരെ മാത്രമായിരിക്കും ഇത്തരം ട്രെയിനുകളിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നത് സ്റ്റേഷനുകളിൽ ഈ ട്രെയിനുകൾക്ക് ടിക്കറ്റ് ലഭിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങളിൽ സാമുഹ്യ അകലം പാലിച്ച് ഇവർക്ക് യാത്ര ചെയ്യാം ജില്ലാ ഭരണകൂടം നിശ്ചയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇവർക്ക് യാത്രാ പാസ് നൽകുന്നത്

റെയിൽവെ സ്റ്റേഷനിൽ മന്ത്രിമാരായ ടി

രാമകൃഷ്ണൻ എ

ശശീന്ദ്രൻ എം

രാഘവൻ എംപി തുടങ്ങിയവർ സംഘത്തെ യാത്രയയച്ചു

രേര അതിഥി തൊളിലാളികളുമായി രണ്ട് ട്രെയിനുകൾ ഇന്നലെ എറണാകുളം ആലുവ സ്റ്റേഷനുകളിൽ നിന്ന് യാത്ര തിരിച്ചു എറണാകുളത്ത് നിന്ന് പാട്നയിലേക്കും ആലുവായിൽ നിന്ന് ഭുവനേശ്വറിലേക്കുമാണ് ട്രെയിനുകൾ പോയത്

പരമാവധി അഞ്ചു പേർക്ക് ചെയ്യാവുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായിരിക്കും അനുമതി ഡബ്ബിങ്ങ് സംഗീതം സൌണ്ട് മിക്സിങ്ങ് എന്നീ ജോലികൾ നാളെ തുടങ്ങാം

ഏറ്റവും കൂടുതൽ പ്രവാസികൾ മടങ്ങിയെത്താൻ യുഎഇ യിൽ നിന്നാണ് രജിസ്ട്രേഷൻ നടത്തിയത്

രുമ കേരളത്തിൽ നിന്ന് പുറത്തേക്കും കേരളത്തിലേക്കും അന്തർ സംസ്ഥാന യാത്രകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു

സഞ്ജയ്

പൊലീസ് പ്രതിനിധിയായി മനോജ് എബ്രഹാമിനെ നിയമിച്ചു രേര പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വഞ്ചനാപരവും നിലപാട് നിഷേധാത്മകവുമാണെന്ന് മുസ്സീം ലീഗ് നേതാവ് ഡോ

ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലെ കേസിൽ എതിർകക്ഷിയായ ഗവൺമെന്റ് സത്യവാങ്മൂലം നൽകാതെ ഒളിച്ചുകളിക്കുന്നത് ദുരൂഹമാണെന്ന് ഡോ

രോഗികൾക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കാനും ഡോക്ടറുമായി വീഡിയോ കോൾ നടത്താനും റോബോട്ട് പ്രയോജനപ്പെടും